ശബരിമലയിൽ പ്രവേശനം അനുവദിച്ച് സുപ്രീംകോടതി ഭക്തിയിൽ വിവേചനം അരുതെന്നും ഭരണഘടനാ ബഞ്ച്

സംസ്ഥാന ഗവൺമെന്റ് വിധ്ചിയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നിടത്ത്രുതെന്ന് ബി ജെ

രൂപയുടെ വിളനാശം ഉണ്ടാക്കിയതായി മന്ത്രി വി

ഓർമ്മിപ്പിച്ച് രാജ്യം പരാക്രം പർവ്വ് ആഘോഷിക്കുന്നു

ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംങ്ങിന് അയച്ചു

മനുഷ്യജീവിതത്തെ വിശുദ്ധിയില്ലേക്ക് നയിക്കാനുള്ള വഴിയാണ് മതങ്ങളെന്ന് കേസ് പരിഗ്രണ്ടിച്ച് അഞ്ചംഗ ഭരണഘടനാബഞ്ച് നിരീക്ഷിച്ചു

ചീഫ് ജസ്റ്റിസനെ കൂടാതെ ജഡ്ജിമാരായ ആർ എഫ് നരിമാൻ ഡി വൈ ചന്ദ്രചൂഡ് എ എം ഖാൻവിൽക്കർ ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ബഞ്ചിൽ ഏക വനിതാ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണ് ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ചത് വിശ്വാസത്തിൽ യുക്തിക്ക് സ്ഥാനമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മൽഹോത്ര മതപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടാതിരിക്കുന്നതാണ് അഭികാമ്യമെന്ന് നിരീക്ഷിച്ചു

ശാരീരികവും ജൈവികവുമായ പ്രത്യേകതകൾ വിവേചനത്തിന് കാരണമാകരുതെന്നും ശബരിമലയിലെ അയ്യപ്പഭക്തരെ പ്രത്യേക ഗണമായി കണക്കാക്കാനാവില്ലെന്നും കോടതി വൃക്തമാക്കി ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തിൽ അനുശാസിക്കുന്ന മൌലിക അവകാശങ്ങൾ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് അനിവാര്യമാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്ഥാന ഗവൺമെന്റ് വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ നിരാശാജനകം എന്നായിരുന്നു ശബരിമല തന്ത്രിയുടെയും പന്തളം രാജകുടുംബത്തിന്റെയും പ്രതികരണം

ജെ

രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസം മേളയായ കേരള ട്രാവൽ മാർട്ടിലെ സ്റ്റാളുകളും പവലിയനുകളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിനോദ സഞ്ചാര മേഖല അതിന്റെ പ്രൌഡി വീണ്ടെടുക്കുന്നതിന്റെ അനുകൂല സൂചനയാണ് മേളയെന്നും അദ്ദേഹം നിരീക്ഷിച്ചു വിവിധ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സംസ്ഥാന വിനോദ സഞ്ചാരമേഖലയുടെ കരുത്ത് എവിടെയും ദൃഷ്ടാന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു

കണക്കാക്കുവാൻ സാധിക്കാത്ത അത്രയും നാശനഷ്ടങ്ങളാണ് കാർഷികമേഖലയിൽ ഉണ്ടായിട്ടുള്ളത് മാനദണ്ഡങ്ങൾക്കതീതമായ സഹായം കർഷകർക്ക് ലഭ്യമാക്കുവാൻ കേന്ദ്രഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടൂള്ണ്ട്ടുന്നും മന്ത്രി പറഞ്ഞു പുനർജ്ജനി എന്ന പേരിൽ ആലുവിയിൽ സംഘടിപ്പിച്ച ഏകദിന കാർഷിക ശില്പശാല ഉദ്ഘാടന്നും ചെയ്യുകയായിരുന്നു മന്ത്രി

പദ്ധതികൾ പച്ചക്കറിയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ക്ട്ട്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ മാതൃകയിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു ടട പ്രധാനമന്ത്രി കംബൈൻഡ് കമാന്റേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ജോധ്പൂരിലെത്തി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ അദ്ദേഹം മൂന്ന് സേനകളുടെയും ഗാർഡ് ഓഫ് ഹോണർ പരിശോധിച്ചു

ട്ടടടടടടടടടടടടട സർജിക്കൽ സ്ഖ്രൈക്ക് സർജിക്കൽ സ്ട്രൈക്കിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റീജ്യണൽ ഔട്ട് റീച്ച് ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെക്രൂപിച്ചുള്ള ത്രിദിന ഫോട്ടോ പ്രദർശനത്തിന് തുടക്കമായി

ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംങ്ങിന് അയയ്ക്കുകയായിരുന്നു